ദിവസം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണത്തിന് വാശിയേറി പരസ്യ പ്രചാരണം ഞായറാഴ്ച അവസാനിക്കും

പാരമ്പര്യമാണ് കോൺഗ്രസ്സിന്റേതെന്ന് പാർട്ടി അദ്ധ്യക്ഷൻ രാഹുൽഗാസ്ട്രി സ്ംസ്ഥാനത്തെ നാലു ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് റാലികളെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു

എ സ്ഥാന്റാർത്ഥികളുടെ പ്രചരണാർത്ഥം ന് ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ കേരളത്തിൽ രാജ്യസുരക്ഷയ്ക്കായി എൻ

എ ഗവൺമെന്റ് ധീരമായ നിലപാട് സ്വീകരിച്ചെന്ന് കണ്ണൂരിൽ വിജയ്സങ്കല്പ് സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ

മത്സരം രാത്രി എട്ടിന് മൊഹാലിയിൽ

നേതാക്കളെത്തിയതോടെ ദേശീയ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന്റെ വാശിയേറിയ മൂന്നാംഘട്ടത്തിലേയ്ക്ക് കടന്നു വരും ദിവസങ്ങളിൽ തീപാറുന്ന പ്രചാരണത്തിന് സംസ്ഥാനം സാക്ഷിയാകും വിശദാംശങ്ങളുമായി ബിന്ദു

വിശ്വാസവും ആചാരവും സംരക്ഷിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്

അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ

മാണിയുടെ പാലായിലെ കരിങ്ങോഴയ്ക്കൽ വീട്ടിലും കോൺഗ്രസ് അദ്ധ്യക്ഷൻ സന്ദർശനം നടത്തി

ജെ പി ദേശീയ നേതാക്കളുടെ സന്ദർശനവും തുടരുകയാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൻ

എ സ്ഥാനാർത്ഥി സി കെ പത്മനാഭന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ണൂരിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച വിജയ് സങ്കല്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജൃസുരക്ഷായ്ക്കു വേണ്ടി ധീരമായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മനേകാഗാന്ധി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട്

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മനേകാ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് തെരഞ്ഞെടുപ്പ കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തി

സുൽത്താൻപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെ നടത്തിയ പരാമർശമാണ് വിലക്കിന് ആധാരമായത്

ജെ

ജില്ലാഭരണകൂടം ഫ്ലൈളയിംഗ് ആന്റി ഡിഫെയ്സ്മെന്റ് സ്റ്റാറ്റിക് സർവൈലൻസ് വീഡിയോ വ്യൂവിംഗ് സ്ക്വാഡ് വീഡിയോ സർവൈലെൻസ് എന്നീ സ്കാഡ് വാഹനങ്ങളി ലും എ വി എം ട്രാൻസ്പോർട് വാഹനങ്ങളിലുമാണ് ജി

മാവോയിസ്റ്റ് സാന്നിധൃം സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ്ത്മിഴ്നാട് നക്സൽ വിരുദ്ധ സേനയുടെ സഹകരണത്തോട്ടെ തുടർച്ചയായ പരിശോധന നടത്തും

അൽപ്പ സമയത്തിനകം തിരുവനന്തപുരം മ്യൂസിയം മൈതാനത്താണ് പരിപാടി

പൂനെയിൽ നിന്നുള്ള ദമ്പതികൾ ഫയൽ ചെയ്ത ഹർജിയിൽ നിലപാട് അറിയിക്കാൻ അവശ്യപ്പെട്ട് ജസ്റ്റിസ് എസ്

ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു

പഞ്ച്കൂല സിർസ ഡൽഹി എന്നിവിടങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റും സ്ഥലവും വസതിയുമാണ് കണ്ടുകെട്ടിയത്

എല്ലിൽ ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും മൊഹാലിയിലെ ബിന്ദ്ര സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മത്സരം

അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസം അവർക്കുണ്ട് ഏഴു മത്സരങ്ങളിൽ രണ്ടു ജയവും അഞ്ചു തോൽവിയും സഹിതം ഏഴാം സ്ഥാനത്താണ് രാജസ്ഥാൻ മറുവശത്ത് എട്ടു മത്സരങ്ങളിൽ നാല് വീതവും ജയവും തോൽവിയുമായി എട്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് പഞ്ചാബ്

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

ഉളളിലുളള വിഷമങ്ങൾ പുറത്തു കാട്ടാതെ സദാ ്ഷൂർച്ചിരിക്കുന്ന ഒരു കോമാളിയുടെ വേഷമാണ് ചാപ്പിൻ കൂടുതലും അവതരിപ്പിച്ചത് ഏതൊരു വിഷമ ഘട്ടത്തിലും പ്രതറാതെ മുന്നോട്ട് പോകണമെന്ന മഹത്തായ സന്ദേശം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലുമുണ്ട്

ഈ ലോകത്ത് യാതൊന്നും ശാശ്വതമല്ലെന്നും അതിൽ പ്രശ്നങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നും ചാപ്സിൻ ലോകത്തോട് പറഞ്ഞു

കേരളം ചൂട് അടുത്ത മാസത്തോടെ കേരളത്തിൽ ചൂട് കുറയുമെന്ന് കേ ന്ദ്ര ഭൌമ മന്ത്രാലയം ഈ മാസം സംസ്ഥാനത്ത് താപനില ഉയർന്നു നിൽക്കുമെന്നും കേന്ദ്ര ഭൌമ മന്ത്രാലയത്തിന്റെ അ റിയിപ്പിൽ പറയുന്നു പസഫിക് സമുദ്രത്തിന് മുകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ട്

ഇതോടെ കേരളത്തിലുൾപ്പെടെ കനത്ത മഴ ലഭിക്കുന്നതിന് കാരണമാകുമെന്നും കേന്ദ്ര ഭൌമ മന്ത്രാലയം വിലയിരുത്തുന്നു

സംഭവത്തിന് ശേഷം അബുദാബ്ടിയിലേക്ക് കടന്ന പ്രതിയെ പൊലീസ് തന്ത്രപൂർവ്വം പ്രിളിച്ചുവരുത്തിയാണ് അറസ്റ്റ് ചെയ്തത് അപകടം കൊച്ചി തൃപ്പുണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂരിൽ വാഹനാപകടത്തിൽ രണ്ട് പേർ മരിച്ചു

ഇന്ന് രാവിലെ കൂട്ടിലങ്ങാടി പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത് മരിച്ചവർ ഇതരസംസ്ഥാന തൊഴിലാളികളാണ്

കേരളത്തിന് പുറമെ കർണ്ണാടക പോണ്ടിച്ചേരി ഡൽഹി എന്നിവിടങ്ങളിലെ നാടക സമിതികളുട്ട പങ്കെടുക്കുന്നുണ്ട് പോൾ മാനേജർ ആപ്പ് ഇത്തവണത്തെ തെരുഖ്ഞെടുപ്പിനെ കൂടുതൽ സ്മാർട്ടാക്കാ നും വോട്ടെടുപ്പുമായീ ബന്ധപ്പെട്ട നടപടി ക്രമങ്ങൾ കുറ്റമറ്റ താക്കാനും അവയുടെ വിവരങ്ങൾ എളുപ്പത്തിൽ കൈമാറാ നും പോൾ മാനേജർ എന്ന മൊബൈൽ ആപ്തിക്കേഷൻ രംഗത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും വിപ്പിപാറ്റ് മെ ഷീനും ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുമായി വിതരണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്നതു മുതൽ വോട്ടിം ഗ് അവസാനിച്ച് തിരികെ സ്വീകരണ് കേന്ദ്രത്തിലെത്തുന്നതു വരെയുള്ള കാര്യങ്ങൾ അപ്പപ്പോൾ മേലധികാരികളെ അറിയിക്കുന്നതിനുള്ളതാണ് പോൾ മാനേജർ ആപ്പ്

ഡി

വീണ്ടും ചരിത്രം ആവർത്തിക്കുമെന്നും പ്രവർത്തന മികവു മണ്ഡലത്തിലെ ജനങ്ങൾ മറക്കില്ലെന്നുമുള്ള പ്രതീക്ഷയിലാണു യുഡിഎഫ് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിലും ഇത്തവണ മണ്ഡലത്തിൽ വിജയമുറപ്പ് എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇത്തവണ ബിജെപി പോരാട്ടത്തിനിറങ്ങുന്നത്

ഇതിൽ ്കോഴിക്കോട് സൌത്ത് ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ഇടതു മുന്നണിയാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ നേട്ടം നൽകുന്ന ശുഭ പ്രതീക്ഷയിൽ വിശ്വസിച്ചാണ് പഴയ കണക്കുകൾ തള്ളി ഇടതുമുന്നണി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്

കളത്തിലിറക്കുമ്പോൾ സിപിഎമ്മിനു കോഴിക്കോട്ട് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു

കഴിഞ്ഞ പത്തു വർഷം കോഴിക്കോടിനു വേണ്ടി താൻ ചെയ്തതു മറന്നു വോട്ടു ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾക്കു സാധിക്കില്ലെന്ന ആത്മവിശ്വാസവുമായാണ് എം

ആരോഗൃമേഖലയിലും റെയിൽവേയിലുമെല്ലാം ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് എം

രാഘവൻ നിരത്തുന്ന പട്ടികയിൽ ആദ്യസ്ഥാനത്തുള്ളത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ എംഎൽഎ എ പ്രദീപ് കുമാറിനെ സ്ഥാനാർഥിയാക്കുമ്പോൾ ജനകീയനായ നേതാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചതിന്റെ ഒരു ആഹ്താദത്തിലാണ് ഇടതു മുന്നണി കോഴിക്കോടിന് ഏറെ ഇഷ്ടപ്പെട്ട സിപിഎമ്മുകാരനായാണ്ടു പ്രദീപ് കുമാർ വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ക്യോഴിക്കോട് സൌത്തിനെ പ്രതിനിധീകരിച്ചും നിയമസഭയിലൂത്തിയിട്ടുണ്ട് എംഎൽഎ എന്ന നിലയിൽ ് എട്ടുത്തു പറയാൻ നേട്ടങ്ങൾ ഏറെ രാജ്യാന്തര നിലവാരം ഷൂലർത്തുന്ന രാജ്യത്തെ ഏക സർക്കാർ സ്കൂൾ എന്ന് ്ട്രില്ലയിലേക്ക് നടക്കാവ് സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവുന്ന് പ്രിസം പദ്ധതിക്കു പിന്നിൽ പ്രദീപ് കുമാറിന്റെ പ്രയത്ന്മായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ മറ്റ് ഏതാനും പദ്ധതികളുമുണ്ട് എടുത്തു പറയാൻ

വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദൾ ഇത്തവണ ഒപ്പമുള്ളതും വിജയ പ്രതീക്ഷ വർധിപ്പിക്കുന്നു കഴിഞ്ഞ പത്തു വർഷം കോഴിക്കോടിനുണ്ടായ വികസന മുരടിപ്പ് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ സാധിക്കുന്നുണ്ട് അതുകണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കെ പി പ്രകാശ് ബാബുവും തീപാറുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്

ഡി എഫും യു ഡി എഫും എൻ

എ പ്രചാരണരംഗത്ത് അണുവിട വിട്ടുകൊടുക്കുന്നില്ല